ഫലം നാളെ വോട്ടെണ്ണലിന് ഒരുക്കങ്ങളായി

ദൌത്യസംഘത്തെ നിയോഗിക്കണ്ണ്മെന്ന് ഹൈക്കോടതി വയനാട് മെഡിക്കൽ ക്ടോളേജിന്റെ നിർമാണ പ്രവർത്തനം ന് ഡിസംബറിൽ തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി

കോട്ടയത്ത് ആരംഭിക്കും

സി സി

ചുമതലയേറ്റു

വിശദാംശങ്ങളുമായി നന്ദകുമാർ

വോട്ടിംഗ് യന്ത്രങ്ങളിലേതിനു പുറമെ ഓരോ മണ്ഡലത്തിലെയും അഞ്ച് ബൂത്തുകളിലെ വി വി

പാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നത് പ്രത്യേക സി

വി നിരീക്ഷണത്തിലായിരിക്കും

എസ് എലിയറയ്ക്കലിലും അരൂരിലേത് ചേർത്തല എൻ

ആദ്യഫലസൂചനകൾ ഒരു മണിക്കൂറിനുള്ളിൽ അറിയാം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വെള്ളക്കെട്ട് ഉണ്ടായപ്പോൾ നഗരസഭ ഫലപ്രദമായി ഇടപെട്ടില്ല

മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാവുമായിരുന്നു

പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പറഞ്ഞു കളക്ടർ അധ്യക്ഷനായ ദൌതൃസംഘത്തെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി നിയോഗിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു വെള്ളക്കെട്ട് പരിഹരിക്കാൻ പേരണ്ടൂർ കനാൽ വൃത്തിയാക്കുന്ന നടപടി വേഗത്തിൽ സ്വീകരിച്ചുവരുന്നതായി നഗരസഭാ അധികൃതർ ഹൈക്കോടതിയെ അറിയിച്ചു

ആൽഫാ വെഞ്ചേഴ്സ് ഫ്ളാറ്റ് നിർമ്മാതാവ് പോൾരാജ് ആണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കീഴടങ്ങിയത് ഇയാളെ അന്വേഷണ സംഘത്തിന് കൈമാറും മരട് കൊച്ചി മരടിലെ ഫ്ളാറ്റ് ഉടമകൾക്ക് ഗവൺമെന്റ് നഷ്ടപരിഹാരം അനുവദിച്ചു

ബാങ്ക് അക്കൌണ്ട് സംബീസ്ഡിച്ച് രേഖകൾ ലഭിക്കുന്ന മുറയ്ക്ക് മറ്റുള്ളവർക്ക് നഷ്ടപരിഹ്ടാൽ അ്നുവദിക്കും

ശൈലജ വയനാട് മെഡിക്കൽ പ്രാക്കോളേജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഡിസംബറിൽ തുടങ്ങുമെന്ന് മന്ത്രി കെ

മെഡിക്കൽ കോളേജിനായി ചേലോട് എസ്റ്റേറ്റിൽ കണ്ടെത്തിയ അമ്പത് ഏക്കർ ഭൂമി സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

കൂടത്തായി റിപ്പോർട്ട് കോഴിക്കോട് കൂടത്തായ് പൊന്നമറ്റം ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ച കൈമാറുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി കളക്ടർ പഞ്ഞു

അന്വേഷണത്തിന്റെ ഭാഗമായി റവന്യൂ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി രേഖപ്പടുത്തിയിരുന്നു കൂടത്തായി താലൂക്കിലെ പോക്കുവരവ് സംബന്ധിച്ച വിവരങ്ങളും ശേഖരിച്ചു ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് പോലീസിനോട് കളക്ടർ വിവരങ്ങൾ തേടിയിട്ടുണ്ട്

അതേസമയം സമൂഹമാധ്യമങ്ങളിലൂടെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അപമാനിക്കുന്നതായി കാണിച്ച് കേസ്ടിലെ പരാതിക്കാരിയായ കന്യാസ്ത്രീ സംസ്ഥാന ദേശീയ വനിത്യാക്ക്മ്മീഷനുകൾക്ക് പരാതി നൽകി

സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന് കമ്മീഷൻ മുൻപാകെ പരാതികൾ ബോധിപ്പിക്കാൻ നേരിട്ട് നാല് തവണ അവസരം നൽകിയിട്ടും ഹാജരാകാത്തതിനാൽ ഇവരുടെ കേസ്സ് അവസാനിപ്പിച്ചതായി വനിത കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ വയനാട്ടിലെ സിറ്റിംഗിനിടെ വ്യക്തമാക്കിയിരുന്നു എം എം മണി ഇടുക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഭവന നിർമാണ പദ്ധതിയുടെ ഭാഗമായി രണ്ടാം ഘട്ടത്തിൽപെടുത്തി നിർമാണം പൂർത്തിയാക്കിയ ഇടുക്കിയിലെ കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളുടെയും താക്കോൽ ദാനം മന്ത്രി എം എം മണി നിർവഹിച്ചു

വയനാട് പ്രത്യേക വിഹിതം ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ ഭാഗമായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷി ജല വിഭവ മേഖലകളിൽ മികച്ച പ്രകടനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലയ്ക്ക് പ്രത്യേക വിഹിതമായി മൂന്ന് കോടി രൂപ ലഭിച്ചു രാജ്യത്ത് പദ്ധതിയ്ക്ക് കീഴിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയതിന്റെ ഭാഗമായാണ് തുക ലഭിച്ചത് രമേശ് ചെന്നിത്തല സാങ്കേതിക സർവ്വകലാശാലയുടെ പരീക്ഷാ നടത്തിപ്പിലുണ്ടായ ചട്ടലംഘനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഗവർണ്ണർക്ക് കത്ത് നൽകി

ടി മിഷൻ നടപ്പാക്കുന്ന ക്രൌഡ് സോഴ്സിംഗ് ദൌത്യമായ മാപ്പത്തോൺ കേരളം പ്രദ്ധതിക്ക് ഇന്ന് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയ്ക്കുശേഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും

സംസ്ഥാനത്തെ വിവിധ എൻജിനീയറിംഗ് കോളേജുകളിലെ നാഷണൽ സർവ്വീസ് സ്കീമിലെ മാപ്പിംഗ് വോളന്റിയർമാരെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും നമുക്ക് നമ്മുടെ ഭൂപടം നിർമ്മിക്കാം എന്ന ആശയത്തോടെ നടപ്പാക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭ നിയന്ത്രണത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനും ആവശ്യമായ ഭൌതിക അടിസ്ഥാന സൌകരൃങ്ങൾ പ്രകൃതി വിഭവങ്ങൾ മറ്റു പ്രയോജനകരമായ വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രാദേശിക ഭൂപടങ്ങൾ രൂപപ്പെടുത്തുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ശൈലജ കോഴിക്കോട് ജൻഡർപാർക്കിൽ സംരംഭകർക്കുള്ള ഇൻകുബേഷൻ കേന്ദ്രം വിൽപ്പനകേന്ദ്രം എന്നിവ ഒരുക്കുമെന്ന് മന്ത്രി കെ

ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ച് കോഴിക്കോട്ട് നടന്ന സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജൻഡർ പാർക്ക് സ്ത്രീ മുന്നേറ്റത്തിനുള്ള കേന്ദ്രമായി മാറുകയാണെന്നും അവർ പറഞ്ഞു

ടി അക്കാദമിയും നടപ്പാക്കുന്ന സ്കിൽ ഡെലിവറി പ്ളാറ്റ്ഫോം ഇന്ന് പ്രവർത്തനം തുടങ്ങും

ദേശീയ ചുഴലിക്കാറ്റ് അപകടസാധ്യതാ ലഘുകരണ പദ്ധതിയുടെ ഭാഗമായാണ് തഴവ പഞ്ചായത്തിൽ കേന്ദ്രം സ്ഥാപിക്കുന്നത്

പ്രവർത്തനരീതി വിശദീകരിക്കുന്നതിനായി തഴവ പഞ്ചായത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു

മലയാളിയായ ജയേഷ് ജോർജ്ജ് ജോ്യിന്റ് സെക്രട്ടറിയാണ്

ഉത്സവത്തോട് അനുബന്ധിച്ച് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പൊതു അവധിയാണ്